പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരി ക്കുന്ന വാരാണസിയിലും ഇന്നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്

ഇന്നത്തെ വോട്ടെടുപ്പും കൂടി പൂർത്തിയാകുന്നതോടെ എക്സിറ്റ് പോൾ ഫല പ്രവ ചനങ്ങൾ പുറത്തുവരും

ഏഴ് മുതൽ വൈകീട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് റീപോളിംഗ് നടക്കുന്ന ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗിന് പുറമെ വീഡിയോ കവറേജും ഉണ്ടാകും

തൂക്കുപാർലമെന്റിന്റെ സാധ്യത മുൻനിർത്തി ഇന്നലെ യു പി എ അധ്യക്ഷ സോണി യാഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയും മുൻപ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻസിംഗും മുതിർന്ന നേതാക്കളായ എ കെ ആന്റണി അഹമ്മദ് പട്ടേൽ എന്നിവ രുമായി ചർച്ച നടത്തി ബുധനാഴ്ച ഒരുവട്ടം കൂടി നേതാ ക്കൾ യോഗം ചേരും ടി ഡി പി നേതാവ് എൻ ചന്ദ്രബാബു നായിഡു ഇന്നലെ വൈകീട്ട് സമാജ് വാദി പാർട്ടി ബഹുജൻ സമാജ് വാദി പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി രാവിലെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി സി പി ഐ നേതാ ക്കളായ ജി സുധാകർ റെഡ്സി ഡി രാജ എൻ സി പി നേതാവ് ശരത് പവാർ എൽ ജെ ഡി നേതാവ് ശരത് യാദവ് എന്നിവ രുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു

കേരളത്തിൽ മൂന്നാം ശക്തിയായി മാറാൻ എൻ ഡി എയ്ക്ക് കഴിഞ്ഞതായും അദ്ദേഹം കോഴിക്കോട്ട് തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പറഞ്ഞു പല യിടങ്ങളിലും എൽഡിഎഫും യു ഡി എഫും യോജിച്ച് എൻ ഡി എയ്ക്കെതിരെ പ്രതിരോധം തീർത്തായും കൃഷ്ണ ദാസ് കുറ്റപ്പെടുത്തി

ഇന്നലെ വൈകീട്ട് ഏഴരയോടെയാണ് നസീറിന് നേരെ ആക്രമണമുണ്ടായത്

ആക്രമ ണത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കെ പി സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനും അപലപിച്ചു ഗാന്ധിനിന്ദയിൽ ഏർപ്പെട്ടിരിക്കുന്ന ബി ജെ പി ആർ എസ് എസ് നേതാക്കളെ വെള്ളപൂശാൻ പ്രധാനമന്ത്രിയും ബിജെപി നേതൃത്വും ശ്രമിക്കുകയാണെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡണ്ട് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആരോപിച്ചു ഹാമത്മാഗാന്ധിയുടെ ഘാതകനെ ബി ജെ പി നേതാക്കൾ ധീരയോദ്ധാവായി ചിത്രീകരിക്കുകയാണ്

കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ കള്ളകേസുകൾ നിയമപരമായി നേരിടും കല്യോട്ട് സമാധാനം തിരിച്ചെത്തി ക്കാൻ ഗവൺമെന്റ് തയ്യാറാകാത്തിൽ ദുരൂഹതയുണ്ടെന്നും മുല്ലപ്പള്ളി പറഞ്ഞു

നിഷാദ് വി മുഹമ്മദ് പി കെ ഫൈസൽ എന്നിവർക്കെതിരെയാണ് നോട്ടീസ്

ആരോഗ്യവകുപ്പിന്റെ ബോധ വത്ക്കരണ സന്ദേശങ്ങൾ ജനങ്ങളിലെത്തിക്കുകയും അനാ വശ്യഭീതി പടർത്താതിരിക്കുകയും ചെയ്ത മാധ്യമങ്ങൾ നിപ വ്യാപനം നിയന്ത്രിക്കാൻ ഏറെ സഹായിച്ചതായി അവർ കണ്ണൂരിൽ പറഞ്ഞു കണ്ണൂർ പ്രസ് ക്ലബിന്റെ പാമ്പൻ മാധ വൻ സ്മാരക പത്രപ്രവർത്തക അവാർഡ് ദീപിക മുൻ സീനി യർ സബ് എഡിറ്റർ സി കെ രാജേഷ്കുമാറിന് സമ്മാനിക്കു കയായിരുന്നു മന്ത്രി

കോഴിക്കോട്ട് നിലവിൽ ചാമ്പ്യൻമാരായ ഗോകുലം കേരള എഫ് സിയെ സഡൻ ഡെത്തിൽ ആറിനെതിരെ ഏഴ് ഗോളിനാണ് നാവികസേന പരാജയപ്പെ ടുത്തിയത് നിശ്ചിത സമയത്ത് ഇരുടീമുകളും ഓരോ ഗോൾ അടിച്ചിരുന്നു ഗോകുലത്തിന്റെ ക്രിസ്ത്യൻ സബയാണ് ടൂർണമെന്റിലെ മികച്ച താരം നേവിയുടെ വിഷ്ണുവിനെ മികച്ച ഗോൾ കീപ്പറായും തെരഞ്ഞെടുത്തു

കോയമ്പ ത്തൂരിൽ ഡൽഹിയെയാണ് കേരളം തോൽപ്പിച്ചത്

കായികക്ഷമത കൈവരി ക്കാൻ പൊതുജനങ്ങളെ സജ്ജരാക്കുന്ന കമ്മ്യൂണിറ്റി സ്പോർട്സിന് പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം കണ്ണൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പറഞ്ഞു കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഭണ്ഡാര എഴുന്ന ള്ളിപ്പ് ചടങ്ങ് ഇന്നലെ നടന്നു അക്കരെ കൊട്ടിയൂരിലേക്ക് വയനാട്ടിലെ മുതിരേരി ശിവക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടു വന്ന വാൾ ആചാരപ്രകാരം അക്കരെ കൊട്ടിയൂരിലേക്ക് എഴു ന്നള്ളിച്ചു

വൈശാഖ മഹോത്സവം സമാപിക്കു ന്നതോടെ ഭൂതത്തെ തിരിച്ചയക്കുന്ന ചടങ്ങ് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നടത്തും ഇടവമാസ് പൂജകൾ പൂർത്തിയാക്കി ശബരിമലയിൽ ഇന്ന് രാത്രി പത്തിന് നടയടയ്ക്കും പുലർച്ചെ മുതൽ വൻ തിര ക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്

തിരുത്തലുകൾക്ക് ചൊവാഴ്ച വൈകീട്ട് വരെ സമയം നൽകിയിട്ടുണ്ട്

കാർഡുടമകളിൽ നിന്ന് അവർ വാങ്ങിയ റേഷൻ സാധനങ്ങളുടെ കമ്പോളവില ഈടാക്കാൻ നടപടി യെടുക്കും തുടർദിവസങ്ങളിലും പരിശോധനയുണ്ടകുമെന്ന് ജില്ലാസിവിൽസപ്ലൈസ് ഓഫീസർ അറിയിച്ചു

ഒമാൻ എയർവേസിൽ കൊണ്ടുവരുന്ന ശരീരം ആംബുലൻസിൽ ശ്രീജിത്തിന്റെ വീട്ടിലെത്തിക്കും

സംഘടനകളുടെ സന്നദ്ധ ആഭിമുഖ്യത്തിലാണ് വിത്തുത്സവം സംഘടിപ്പിക്കുന്നത്

വൈകിട്ട് മന്ത്രി എം എം മണി താക്കോൽദാനം കൈമാറും

കേരള മുൻസിപ്പൽ ആന്റ് കോപ്പറേ ഷൻ സ്റ്റാഫ് അസോസിയേഷന്റെ സംസ്ഥാന നേതൃത്വ സംഗമം അടൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേ ഹം

എറണാകുളം കീച്ചേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചു ഈ അംഗീ കാരം നേടുന്ന സംസ്ഥാനത്തെ മൂന്നാമത്തെ സ്ഥാപനമാണ് കീച്ചേരിയിലേത്

അംഗീകാരം ലഭിക്കുന്ന

നെടുമ്പാശ്ശേരി സ്വദേശി ശ്വേതയാണ് മരിച്ചത് ഇടുക്കി ചിന്നക്കനാലിൽ തോട്ടം തൊഴിലാളികൾ നടത്തുന്ന കുടിൽകെട്ടി സമരം ഇരുപത്തിയാ ദിവസം പിന്നിടുന്നു